തേടും

ചെയ്ത അന്താരാഷ്ട്ര നീതിന്ദ്ധാ്യികോടതി വിധി ഇന്ത്യ സ്വാഗതം ചെയ്തു

കോങ്കോയിലെ എംബോള പകർച്ചവ്യാധി ആശങ്ക ഉയർത്തുന്ന സാഹചരൃത്തിൽ ലോകാരോഗൃ സംഘടന ആരോഗൃ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു

ഡി എസ് സഖ്യകക്ഷി ഗവൺമെന്റ് ഇന്ന് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടും

പ്രതിപക്ഷമായ ബിജെപി ഗവൺമെന്റിനെതിരായ അവിശ്വാസ പ്രമേയനോട്ടീസ് നൽകിയിരുന്നെങ്കിലും സ്പീക്കർ മന്ത്രിസഭയുടെ വിശ്വാസ വോട്ടെടുപ്പാണ് പരിഗണിക്കുകയെന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എം

എ മാരെ നിർബന്ധിക്കാനാകില്ലെന്ന സുപ്രീംകോടതിയുടെ ഇന്നലത്തെ വിധി ഫലത്തിൽ സഖ്യഗവൺമെന്റിനെ നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ വിശ്വാസവോട്ടിനെ അതിജീവിക്കാനുള്ള അംഗബലം ഭരണപക്ഷത്തിനില്ല

വിശ്വാസവോട്ടെടുപ്പ് അതിജീവിക്കണമെങ്കിൽ ഏഴ് പേരെയെങ്കിലും ഗവൺമെന്റിന് തിരിച്ചെത്തിക്കണം

അതിനിടെ സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്ത വിമത എം എൽ എ മാർ രാജി തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വ്യക്തമാക്കി മുംബൈയിൽ തുടരുന്ന ഇവർ വിശ്വാസവോട്ടിന് ശേഷം മാത്രമേ ബാംഗ്ലൂരിൽ തിരിച്ചെത്തുകയുള്ളൂ എന്ന് വിമതപക്ഷത്തിന് നേതൃത്വം നൽകുന്ന എ

ഒൻപത് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്

അവസാന വർഷ എം ബി ബി

ഇത് പിജി മെഡിക്കൽ കോഴ്സിനുള്ള അംഗീകാര പരീക്ഷയും വിദേശ മെഡിക്കൽ ബിരുദധാരികൾക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റും ആയിരിക്കും നീറ്റ് ദേശീയ പൊതുപരീക്ഷയാക്കാനും രാജ്യത്തെ എല്ലാ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുവായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാൻ എയിംസ് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ബാധകമാകും

മേഖലയിലെ ഗതാഗതകുരുക്കുകൾ പരിഹരിക്കാൻ നിർമ്മാണത്തിലൂടെ സാധിക്കും

സത്യത്തിന്റെയും നീതിയുടെയും വിജയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

വിധിയെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു കുൽഭൂഷൺ ജാദവിന് നീതി ലഭിക്കുമെന്നും ഉറപ്പുണ്ട് ഓരോ ഇന്ത്യക്കാരന്റെയും സുരക്ഷയും ക്ഷേമവും മുൻനിർത്തിയാണ് ഗവൺമെന്റ് എപ്പോഴും പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി

കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള പാക് സൈനിക കോടതി വിധിക്കെതിരെ ഇന്ത്യ നൽകിയ ഹർജിയിൽ ഇന്നലെയാണ് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി പ്രസ്താവം നടത്തിയത് വധശിക്ഷ തടഞ്ഞ കോടതി പാക് സൈനിക കോടതിയുടെ വിധി പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് ലോകം കൂടുതൽ ഗൌരവത്തോടെ ചിന്തിക്കാനും ഇതിനെതിരെയുള്ള പരിശ്രമങ്ങൾ വർദ്ധിപ്പിക്കാനും സമയമായെന്ന് ഡബ്ളിയു

ലോകാരോഗ്യ സംഘടനയുടെ ചരിത്രത്തിൽ ഇത് അഞ്ചാം തവണയാണ് ആരോഗ്യ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്

വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടന ബഞ്ച് കഴിഞ്ഞയാഴ്ച മദ്ധ്യസ്ഥ സമിതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു

ഐ ഖലീഫുള്ളയ്ക്ക് നിർദ്ദേശം നൽകിയത് മദ്ധ്യസ്ഥ ശ്രമത്തിൽ കാര്യമായ പുരോഗതി ഇല്ലെന്ന് കാണിച്ച് കേസിലെ പ്രധാന കക്ഷിയുടെ നിയമപരമായ പിൻതുടർച്ചക്കാരൻ ഗോപാൽ സിംഗ് വിശാരദ് സമർപ്പിച്ച അപേക്ഷയിലാണ് കോടതി ഉത്തരവ് മദ്ധ്യസ്ഥ സമിതിയുടെ റിപ്പോർട്ട് പഠിച്ചശേഷം ഇന്ന് അനുയോജ്യമായ ഉത്തരവ് നൽകുമെന്നും കോടതി വ്യക്തമാക്കി

എന്നാൽ നദികളിലെ ജലവിതാനം കുറഞ്ഞതോടെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി

സ്ഥിതിഗതികൾ വിലയിരുത്താൻ സംസ്ഥാന ജലവിഭവ മന്ത്രി കേശബ് മഹന്ദ ഇന്ന് പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും

ഒന്നരലക്ഷത്തിലേറെ പേർ ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്

ഇന്ന് മുതൽ രണ്ട് ദിവസത്തേക്ക് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

മഴ ശക്തമാകുന്നത് കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു ഇന്ന് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ അതിതീവ്ര മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത് കടൽ പ്രക്ഷുബ്ധമായതിനാൽ മീൻ പിടിക്കാൻ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്

ഇന്ത്യൻ താരം വി

പി ജാബിർ നാലാം സ്ഥാനവും നേടി

വസ്തുവിന്റെ കൈവശാവകാശം സംബന്ധിച്ച് ഗ്രാമവാസികൾക്കിടയിൽ ഉണ്ടായ തർക്കമാണ് വെടിവയ്പ്പിൽ കലാശിച്ചത്